പ്രചാരണം സജീവമായി നിരവധി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു

അവസാനഗഡു കേന്ദ്രം ഇന്ന് അനുവദിച്ചു

ദേശീയ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഇരു സഭകളും ഇന്ന് സമ്മേളിച്ചത്

രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ തകർക്കുന്നതാണ് ഭേദഗതിയെന്ന് ശശി തരൂർ എംപി ബില്ലിനെ എതിർത്തു കൊണ്ട് സഭയിൽ വൃക്തമാക്കി എന്നാൽ കേന്ദ്രത്തിന്റെ അധികാര പരിധി യിൽ വരുന്ന കാര്യങ്ങളാണ് ബില്ലിൽ ഉള്ളതെന്ന് ശ്രീ

ദേശീയ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബിൽ രാജ്യ സഭ ഇന്ന് പാസാക്കി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെയും ഹരിയാനയിലെ കുണ്ട്ലിയിലെയും ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ദേശീയ പ്രാധാ ന്യമുള്ളവയായി പ്രഖ്യാപിക്കുന്നതാണ് ഈ നിയമം വിദ്യാഭ്യാസ നില വാരം ഉയർത്തുന്നതിനു പുറമേ ഈ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധൃത ഇതിലൂടെ വർദ്ധിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിങ്ങ് തോമർ സഭയിൽ വ്യക്തമാക്കി

കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്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

പെട്രോൾ ഡീസൽ ഏവിയേഷൻ ഫ്യുവൽ പ്രകൃതിവാതകം എന്നിവയ്ക്ക് ജി

ടി ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലില്ല ഈ വിഷയം ഉചിതമായ സമയത്ത് ജി എസ്

ഇന്ധനവില കുറയ്ക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ധനകാരൃസഹമന്ത്രി അനുരാഗ് താക്കൂർ ലോക്സഭയിൽ വ്യക്തമാക്കി

ധനകാര്യസഹമന്ത്രി അനുരാഗ്താക്കൂർ ലോക്സഭയിൽ രേഖാമൂലം നല്കിയ മറുപടിയിലാണ് ഇക്കാര്യം വൃക്തമാക്കിയത്

സിയെ സ്വകാര്യവത്ക്കരിച്ചിട്ടില്ലെന്ന് കേന്ദ്രസർക്കാർ

ഓഹരി വിറ്റഴിക്കലിലൂടെ എൽ

സിയുടെ നിക്ഷേപ തോത് വർദ്ധിപ്പിക്കാനാകുമെന്ന് കേന്ദ്രധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ ലോക്സഭയിൽ വ്യക്തമാക്കി എത്രശതമാനം ഓഹരി വിറ്റഴിക്കും എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ജയശങ്കർ കോവിഡ് സാഹചര്യം പ്രവാസി ഇന്ത്യാക്കാരെ എങ്ങനെ ബാധിക്കുന്നുവെന്നത് സംബന്ധിച്ച് പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം

പ്രവാസി ഇന്ത്യക്കാരെ ജോലിസ്ഥലങ്ങളില്ലേക്ക് മടക്കി അയക്കുന്നതിലാണ് രാജ്യം ഇപ്പോൾ ശ്രദ്ധ ക്ക്രിന്ദ്രീക്രിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

മുഖ്യ മന്ത്രി പിണറായി വിജയൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു

പ്രചാ രണ പരിപാടിയുടെ ഭാഗമായുള്ള പൊതു യോഗങ്ങളും ഗൃഹ സന്ദർശനവും മണ്ഡലങ്ങളിൽ സജീവമാണ് വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായി സംസ്ഥാനത്തേക്ക് ദേശീയ നേതാക്കളും താരപ്രചാരകരും എത്തും വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം

പശ്ചിമബംഗാളിലെ ബങ്കുര ഛാർഗ്രാം മേദിനിപ്പൂർ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിങ്ങളിൽ നടന്ന ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങ ളിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ നിതിൻ ഗഡ്കരി തുടങ്ങിയവർ പങ്കെടുത്തു

ഇന്ന് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസാമി സേലത്തും ഡിഎംകെ നേതാവ് എം

കടമ്പൂർ രാജു ആർ ബി ഉദയകുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്

അതേ സമയം രാജ്യത്ത് രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരത്തോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്

രണ്ടാം ഘട്ട വാക്സിനേഷന് മികച്ച പ്രതിക്രിങ്ങമാണ് രാജ്യമെമ്പാടും ലഭിക്കു ന്നത്

പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാ ലാണ് തീരുമാനം

ഡെൻമാർക്ക് നോർവെ ബൾഗേറിയ ഐസ്ലാന്റ് തായ്ലാന്റ് എന്നീ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ അസ്ട്രാസെനേകാ വാക്സിന്റെ ഉപയോഗം നിർത്തി വച്ചിട്ടുണ്ട്

ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ചാണ് ഇത് സംബന്ധിച്ച് ബിജെപ്പി ന്റേതാവായ അശ്വനികുമാർ ഉപാധ്യായ നൽകിയ ഹർജി പരിശ്ശണിച്ചത്

തുടർച്ചയായ വിജയം ലക്ഷ്യമിട്ടാവും ഇന്ത്യ മൂന്നാം അങ്കത്തിനായി നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇറങ്ങുക ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഗംഭീര തിരിച്ചുവരവാണ് ഇന്ത്യ ഇന്നലെ നടത്തിയത്